ഡൽഹിയിലെ സ്ഥിതിഗതിക്കുൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ്യുടെ നേതൃത്വത്തിൽ ഇന്ന് സർവ്വക്ഷി യോഗം

കോവിഡ് രൂക്ഷമായ മഹാരാഷ്ട്രയിൽ രോഗബ്ബാധിത്രുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു

ആകെ കോവിഡ് ബാധിതരിലെ പകുതിയിലേറെ പേർക്ക് രോഗം ഭേദമായതെന്ന് രോഗമുക്തി നിരക്ക് സൂചിപ്പിക്കുന്നതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം അറിയിച്ചു കൃത്യമായ സമയത്ത് രോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതുമാണ് രോഗമുക്തി നിരക്ക് കൂടാൻ കാരണം

സിഎം

ഇന്നലെ ന്യൂഡിൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്

ബിജെപി ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ബി

പി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഡൽഹി ചീഫ് സെക്രട്ടറി ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുക്കും

ഡൽഹിയിലെ കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും വിലയിരുത്താനുമായി നാല് ഐ

എസ് ഓഫീസർമാരെ ന്യൂഡൽഹിയിലേക്ക് ഉടൻ നിയോഗിക്കാ്ൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകിട്ട് നിലവിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സേപ്പുനം അനുഷ്ഠിക്കുന്ന അവനീഷ് കുമാർ മോണിക്ക പ്രിയദ്ർശ്ിനി എന്നിവരെയും അരുണാചൽ പ്രദേശിൽ സേവനം അനുഷ്ഠിക്കുന്ന ഗൌരവ് സിംഗ് രെജാവത് വിക്രം സിംഗ് മാലിക് എന്നിവരെയാണ് ന്യൂഡൽഹിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്

എന്നാൽ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കണം സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ നടപടി

അവശ്യ സർവ്വീസുകളിൽ ജോലി ചെയ്യുന്നവർക്കാ യിരിക്കും പ്രഥമ പരിഗണന നൽകുന്നത് കോവിഡ് മാർഗ്ഗനിർദ്ദേശ ങ്ങൾ പൂർണ്ണമായി പാലിച്ചായിരിക്കും സബർബൻ സർവ്വീസുകൾ പുനരാംരഭിക്കുന്നതെന്ന് വെസ്റ്റേൺ റെയിൽവേ ട്വിറ്ററിൽ അറിയിച്ചു

മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയും മൂന്ന് ആരോഗ്യ പ്രവർത്തികർക്കും രോഗം ബാധിച്ചു

ഇതിനുള്ള പ്രവർത്ത നങ്ങൾ തുടങ്ങി

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ചിലി മെക്സിക്കോ പെറു ഇറാൻ തുടങ്ങിയ രാജ്യങ്ങ ളിൽ നൂറിലധികം പേർ മരിച്ചു മരണസംഖ്യയിൽ ഇന്തൃ നാലാം സ്ഥാനത്താണ്

കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യാൻ സമ്പദ് വ്യവസ്ഥ പഴയ നിലയിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ്

വയനാട് പാലക്കാട് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപൂരം ഒഴികെ ഒൻപത് ജില്ലകളിൽ ശക്തമായ മഴസാധ്യത കണക്കിലെടുത്ത് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു